നൂതന സങ്കേതങ്ങൾ ഉപയോഗിക്കാൻ അംഗൻവാടി പ്രവർത്തകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ലോകഏഷ്യൻ വികസന ബാങ്കുകളുടെ പ്രത്യേകസംഘം എത്തി

പോഷൺ മാ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെമ്പാടുമുള്ള ആശാപ്രവർത്തകരും അംഗൻവാടി പ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസിംഗിലുടെ സംവദിക്കുകയായിരുന്നു അദ്ദേഹം

പ്രധാനമന്ത്രി ജീവൻജ്യോതി ബീമായോജന സുരക്ഷാ ബീമാ യോജന പദ്ധതികളിലൂടെ ആശാപ്രവർത്തകർക്കും സഹായികൾക്കും സൌജന്യ ഇൻഷുറൻസും നല്കും അംഗൻവാടി പ്രവർത്തകർക്കു നല്കുന്ന ഓണറേറിയത്തിലും വർദ്ധനവ് നല്കിയിട്ടു ്

നവീനമാർഗ്ഗങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാൻ അംഗൻവാടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി അവരുടെ സേവനങ്ങളെ അഭിനന്ദിച്ചു

ഭാരത്തിന്റെ ഭാവി യുവാക്കളുടെ കൈകളിലാണെന്ന് സ്വാമീവിവേകാനന്ദൻ ഉറച്ചു വിശ്വസിച്ചിരുന്നുവെന്നും രാഷ്ട്ര നിർമ്മാണത്തിൽ യുവാക്കളുടെ സംഭാവനകളിൽ താൻ സന്തുഷ്ടനാണെന്നും ശ്രീ

കോയമ്പത്തൂരിലെ ശ്രീ രാമകൃഷ്ണ മഠമാണ് പരിപാടി സംഘടിപ്പിച്ചത്

നിരവധി പേർക്ക് പരിക്കേറ്റു മരണസംഖ്യ ഇനിയും ഉയർന്നേയ്ക്കുമെന്നാണ് സൂചന

രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് അറുപതിലധികം യാത്രക്കാരുമായി വന്ന ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം

ഗവർണറും മുഖ്യമന്ത്രിയും അപകടത്തിൽ അനുശോചിച്ചു

ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് ഇത്തരത്തിൽ പറഞ്ഞത് ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസ്ഥയിൽ നിഷ്ക്രിയ ആസ്തികൾ വർദ്ധിപ്പിച്ചത്

സ്മൃതി ഇറാനി കോൺഗ്രസിനെതിരെ രൂക്ഷമായ ആരോപണമുന്നയിച്ചത് നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി നല്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു നികുതി ദായകരുടെ പണമുപയോഗിച്ച് മോശം പ്രവർത്തനങ്ങൾ നടത്താനായിരുന്നു ഗാന്ധി കുടുംബം ചിന്തിച്ചിരുന്നതെന്നും ശ്രീമതി സ്മൃതി ഇറാനി ആരോപിച്ചു

ഉത്തർപ്രദേശിൽ ഡൽഹി ഷഹാറൻപൂർ ദേശീയപാത്യുടെ ശിലാസ്ഥാപനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം കരിമ്പു കർഷകർക്ക് കൃത്യമായ പലിശ നിരക്കീൽ വായ്പ ലഭ്യമാക്കുമെന്ന് ചടങ്ങിൽ സംബന്ധിച്ച യു

മുഖൃമന്ത്രി യോഗി ആദിത്യറാഫ് പറഞ്ഞു

സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ആഗോള താപനം നേരിടാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒരു നേതൃത്വം ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് യു എൻ

പോളിഷ് നഗരമായ കറ്റോവെയ്സിൽ നടക്കാനിരിക്കുന്ന കാലാവസ്ഥാ ഉച്ചുകോടി നിർണ്ണായകമായിരിക്കുമെന്നും അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ജനങ്ങളെ സേവിക്കുന്ന അവരുടെ നേതാക്കൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നത് സംബന്ധിച്ചായിരിക്കും ഉച്ചകോടി ചർച്ച ചെയ്യുകയെന്ന് അദ്ദേഹം പറഞ്ഞു

ഇതുവഴി നേപ്പാളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനാവുമെന്ന് കന്നി ബസിന് പച്ചക്കൊടി വീശിയ ശേഷം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറഞ്ഞു

തുടക്കത്തിൽ നാലു ബസ് ബോധ്ഗയയ്ക്കും കാഠ്മണ്ഡുവിനുമിടയിൽ സർവീസ് നടത്തുമെന്ന് ശ്രീ

ഇതിനിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാരൃത നടപടിക്രമങ്ങൾ ആം ആദ്മി പാർട്ടി നടപ്പാക്കിയിട്ടില്ലെന്ന് കമ്മീഷൻ പറഞ്ഞു പ്രഥമദൃഷ്ട്യാ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങൾക്കു വിരുദ്ധമായ നിലപാടാണ് പാർട്ടിയുടേതെന്നും അവർ വിശദമാക്കി

കടലിലെ സുരക്ഷാ പ്രവർത്തനം വിവര വിനിമയം സംഘ പരിശീലനം സമുദ്ര പുനരു ജീവന പ്രവർത്തനങ്ങൾ എന്നിവയിലാണ് അഭ്യാസ പ്രകടനങ്ങൾ പ്രധാനമായും കേന്ദ്രകരിക്കുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചബഹാർ തുറമുഖമടക്കമുള്ള മേഖലകളിലെ സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തൽ തീവ്രവാദ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ബന്ധം ശക്തിപ്പെടുത്തൽ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നല്കൽ തുടങ്ങിയവയാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത് വിദേശകാരൃ സെക്രട്ടറി വിജയ് ഗോഖലെയാണ് ഇന്തൃൻ സംഘത്തെ നയിച്ചത് അടുത്തഘട്ട ചർച്ചകൾ വരും വർഷം ഇന്ത്യയിൽ വച്ചു നടത്താൻ മൂന്നു രാജ്യങ്ങളും തമ്മിൽ ഗ്ലാർണ്യായി

പരിപാടിയുടെ പരിശീലനം ലോകത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിനുള്ള മുന്നൊരുക്കമായി നാറ്റോ അപലപിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ഷീല

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പിന്നീട് ധനമന്ത്രിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും സംഘം ചർച്ച നടത്തും

തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിന് ശേഷം കലോത്സവത്തിലെ മത്സരങ്ങളും വേദിയിലെ സമയക്രമങ്ങളും തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കലാ കായിക ശാസ്ത്ര മേളകൾ ആർഭാടമില്ലാതെ നടത്താനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് മികച്ചവരെ തിരഞ്ഞെടുക്കാനുള്ള പ്രക്രിയ മാത്രമായി കലോത്സവം മാറും കുട്ടികളുടെ സർഗശേഷി തെളിയിക്കാനുള്ള അവസരമായി കലോത്സവത്തെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്ന് വിദ്യാഭ്യാസമന്ത്രി വൃക്തമാക്കി